ഇന്ത്യൻ ബംഗളുരുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

ഗുവഹാട്ടിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ മത്സരങ്ങൾക്കായി സജീവ തയ്യാറെടുപ്പുകൾ

രാജ്യത്തിന്റെ വേഗതയേറിയ പ്രവർത്തിക്കണമെന്നും രാജ്യത്തിന്റെ വളർച്ച ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിജയത്തെ ആശ്രയിച്ചാണിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു റിപ്പോർട്ട്

ശാസ്ത്ര സാങ്കേതികരംഗത്തു നിന്നുള്ള പതിനയ്യായിരത്തോളം പ്രതിനിധികൾ അഞ്ചു ദിവസത്തെ ശാസ്ത്ര കോൺഗ്രസിൽ സംബന്ധിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗ്രാമ വികസനത്തിന് എന്നതാണ് ഇത്തവണത്തെ ശാസ്ത്ര കോൺഗ്രസിന്റെ സന്ദേശം നോബൽ പുരസ്ക്കാര ജേതാക്കൾ ശാസ്ത്രജ്ഞർ ഗവേഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി പ്രതിനിധീകരിക്കുന്നവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്

ഭക്ഷ്യസുരക്ഷയ്ക്കും കാർഷിക വിള വർദ്ധനയ്ക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ കൃഷിരീതി നിർമിത ബുദ്ധി ഉപയോഗിച്ചുള്ള വിളപരിപ്പാലുനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ കോൺഗ്രസ്സിൽ ചർച്ചയാപ്പും നോബൽ സമ്മാനം നേടിയ ജർമൻ ശാസ്ത്രജ്ഞൻ പ്രൊഫിക് സ്റ്റീഫൻ ഹെലൻ അടക്കമുള്ള പ്രമുഖർ പരിപാടിയിൽ സ്സ്ാരിക്കും ബെംഗളുരു കാർഷിക സർവ്വകലാശാലയിലാണ് ശ്രീസ്ത്ര കോൺഗ്രസ്സ് നടക്കുന്നത്

വ്യാജപ്രചാരണങ്ങളിൽ വീണു പോകരുതെന്ന് ന്യൂനപക്ഷങ്ങളോട് ശ്രീ

ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൌരത്വ രജിസ്റ്ററും തമ്മിൽ ബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

ന്യൂസിന് നൽകിയ അ്ഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പൌരത്വ നിയമ ഭേദഗതി പാർലമെന്റ് നിയമാനുസൃതമായി പാസാക്കിയതാണ് നിയമത്തിനെതിരായ തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിനായി ബി ജെ പി സംഘടിപ്പിക്കുന്ന ജൻ ജാഗരൻ അഭിയാൻ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധങ്ങളെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ കോൺഗ്രസ്സ് ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു

ജെ

ടോൾഫ്രീ നമ്പർ ഏർപ്പെടുത്തി

ഇതിന്റെ ഭാഗമായി നേതാക്കളും പ്രവർത്തകരും മൂന്ന് കോടി കുടുംബങ്ങളുമായി ബന്ധപ്പെടും

സമൂഹത്തിന്റെ ഒത്തൊരുമ വിദ്യാഭ്യാസം സ്ത്രീശാക്തീകരണം എന്നിവയ്ക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് സാവിത്രിഭായ് ഫുലെ എന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു സമൂഹത്തിന് വേിയുള്ള സാവിത്രിഭായിയുടെ പോരാട്ടം രാജൃത്തെ ഓരോ പൌരനും പ്രചോദനമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

പരിശോധനയുടെ മൂന്നാം റൌണ്ടിൽ കേരളത്തെ ഒഴിവാക്കി വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശനവും ഉൾപ്പെടെയുള്ള നവോത്ഥാന സംഭാവനകൾ അടിസ്ഥാനമാക്കിയ ഫ്ളോട്ടാണ് ഇത്തവണ സംസ്ഥാനം അവതരിപ്പിക്കാനിരുന്നത് നാല് ഘട്ടങ്ങളിലായുളള പരിശോധനക്കൊടുവിൽ സംസ്ഥാനങ്ങളാണ് പരേഡിന്റെ ഭാഗമാകുക

തിരുവനന്തപുരത്ത് ലോക കേരള സഭയിൽ സമാപന പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി പ്രവാസി മലയാളികളുടെ പൊതുവേദിയായ ലോക മലയാള സഭയുടെ രണ്ടാം സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും

നവകേരള നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്കിനെക്കുറിച്ചായിരുന്നു സമ്മേളനത്തിലെ മുഖ്യ ചർച്ച ലോക കേരള സഭയെ സ്ഥിരം വേദിയാക്കാനുള്ള നിയമ നിർമ്മാണ നടപടിക്ക് സമ്മേളനത്തിൽ തീരുമാനമായി

വോട്ടെണ്ണൽ ഇന്നലെയാണ് ആരംഭിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

ഇവിടെയുള്ള പള്ളിക്ക് മുൻപിൽ പൊലീസ് വീഡിയോ ചിത്രീകരിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് കൃ വ്യന്നതാണ് അക്രമ സംഭവങ്ങൾക്ക് കാരണമായത് പൊലീസിനു നേരെ ആൾക്കൂട്ടം കല്ലുകൾ വലിച്ചെറിയുകയും പീഴ്ർത്വ ഭേദഗതി നിയമത്തിനെതിരായ മുദ്രാവാകൃങ്ങൾ മുഴക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് സാഹചരൃങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പൊലീസിന് ആകാശത്തേക്ക് നിറയൊഴിക്കേണ്ടിവന്നു അഹമ്മദാബാദിലും പൊലീസിന് നേരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞതാണ് അക്രമ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത്

അസം സ്പോർട്ട്സ് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഓംകാർ കേദിയയും സാമൂഹൃ ക്ഷേമവകുപ്പ് സെക്രട്ടറി ഹേമൻദാസും ഗുവഹത്തി ആകാശവാണി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്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

സംസ്ഥാനത്തെ യുവകായിക പ്രതിഭകളുടെ കളിക്കളത്തില്പ് സ്വപ്നങ്ങൾ സഫലമാക്കാൻ മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ

ഏവിയേഷൻ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഭീകരവാദ സാധ്യതകൾ മുൻ നിർത്തിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാക് പ്രിമീാനങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങളിൽ നിന്നും അമ്മേരിക്ക്ൻ സിവിൽ ഏവിയേഷൻ മേഖല നേരിടുന്ന വെല്ലുവിളി പ്രത്യുടരുകയാണെന്ന് എഫ്

പ്രൂറപ്പെടുന്നതും എത്തിച്ചേരുന്നതും താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതും ആയ എല്ലാ വിമാനങ്ങൾക്കും ഇത് ബാധകമാണ് സുരക്ഷത്യ ബാധിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പൈലറ്റുമാരും എയർലൈൻസും റിപ്പോർട്ട് ചെയ്യണമെന്നും ഏവിയേഷൻ വിഭാഗം അറിയിച്ചു

ഇന്നലെ മന്ത്രി എ

മൊയ്തീനെ കണ്ട സമീപത്തെ ഫ്ളാറ്റ് ഉടമകൾ ആശങ്കകൾ പങ്കു വച്ചിരുന്നു